പാർലമെന്റ് ബജറ്റ് സ്സ്മ്മേളനത്തിന്റെ ആദ്യഘട്ടം സമാപിച്ചു

ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും

ബിജെപി എട്ട് സീറ്റ് നേടി

ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ് രിവാൾ ന്യൂഡൽഹിയിൽ നിന്നും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പട്പട്ഗഞ്ചിൽ നിന്നും ഗോപാൽറായ് ബാബർപൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു രോഹിണിയിൽ ബിജെപി നേതാവ് വിജേന്ദർ ഗുപ്തയും വിശ്വാസ് നഗറിൽ ഓം പ്രകാശ് ശർമ്മയും സീറ്റ് നിലനിർത്തി തുടർച്ചയായ രണ്ടാം തവണയും ഒരു സീറ്റും നേടാനാകാത്ത കോൺഗ്രസ്സ് ഒരു ചലനവും സൃഷ്ടിച്ചില്ല

ബഹുഭൂരിപക്ഷം പേർക്കും അഞ്ച് ശതമാനത്തിൽ താഴെ വോട്ടാണ് ലഭിച്ചത്

എൽ

പാർട്ടി നിയമസഭാ കക്ഷി നേതാവിനെ യോഗം തെരുള്ളത്തിടുക്കും

രാംലീല മൈതാനത്ത് വിപുലമായ ്ചടങ്ങ് സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത്

അരവിന്ദ് കേജ്രിവാളിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഡൽഹി ജനതയുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ എ

ഡൽഹി തെരഞ്ഞെടുപ്പിലെ ജനവിധി മാനിക്കുന്നതായി ബി ജെ

അധ്യക്ഷൻ ജെ

നല്ല പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും വികസന സംബന്ധമായ എല്ലാ വിഷയങ്ങളും ഉയർത്തി കാട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആം ആദ്മി പാർട്ടിയുടെ വിജയത്തെ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി രൺദീപ് സിംഗ് സുർജേവാല തുടങ്ങിയവരും അഭിനന്ദിച്ചു

ജെ

യുടെ വിഭജന രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലമെന്ന് സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു

എൽ എ യായ നരേഷ് യാദവും സംഘവും സഞ്ചരിച്ച വാഹനത്തിന് നേരെ വെടിവയ്പ് വെടിവയ്പിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകനായ അശോക് മൻ കൊല്ലപ്പെട്ടതായി പാർട്ടി നേതാവ് സജ്ജയ് സിംഗ് ട്വീറ്റ് ചെയ്തു

നിയമ സംവിധാനത്തെ പരിഹസിക്കുന്ന തരത്തിലാണ് പ്രതികൾ പ്രവർത്തിക്കുന്നതെന്ന് ഹർജിയിൽ പറയുന്നു അതേസമയം ദയാ ഹർജി തള്ളിയ രാഷ്ട്രപതീയുടെ നടപടി ചോദ്യം ചെയ്ത പ്രതികളിൽ ഒരാളായ വിനയ് ശർമ്മി ്ജ്ന്ന്ലെ സുപ്രീംകോടതിയിൽ ഹർജി നൽകി

ബജറ്റിൻമേലുള്ള ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ മറുപടി നൽകി

കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് വിശദമായ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യസഭയിലും ലോക്സഭയിലും നടന്നത് കേന്ദ്രഗവൺമെന്റ് മികച്ച സാമ്പത്തിക അച്ചടക്കമാണ് പാലിക്കുന്നതെന്ന് മന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു വിലക്കയറ്റം നിയന്ത്രിച്ചു ഭക്ഷ്യ വിലവർദ്ധന കടിഞ്ഞാൺ വിട്ടുപോകാതെ പിടിച്ചുനിർത്താനായി

ഇത് സമ്പദ്ഘടന ശക്തിപ്പെടുത്താനുള്ള പുതിയ തീരുമാനങ്ങളെടുക്കാൻ കേന്ദ്രസർക്കാരിനെ സഹായിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിനാണ്ട് പുതിയ പേര് നിർദ്ദേശിച്ചതെന്ന് ഡബ്ളിയു

ഒ അറിയിച്ചു

പിന്നീട് വന്ന സംസ്ഥാന ഗവൺമെൻ്റുകൾ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളും സുപ്രീംകോടതിയുടെ ഉത്തരവുകളും നടപ്പിലാക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വരുത്തിയതെന്ന് ജസ്റ്റിസ് ആർ

ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകും ചർച്ചകൾക്ക് മന്ത്രി മറുപടി നൽകും

ചൂട് വർധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി

സൂര്യാഘാതത്തിനുള്ള സാഹചര്യമുള്ളതിനാൽ മുൻകരുതലെന്ന നിലയിലാണു തൊഴിൽ സമയം പുനഃക്രമീകരിച്ചത്

പ്രാദേശിക സാഹചര്യം കണ്ടുക്ക്ീല്ലെടുത്ത് തീയതികളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ആവ്സ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഉത്തരവിൽ നിർദേശ്വിച്ചിട്ടു്ണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിൽ രേഖപ്പെട്ടുത്തിയ ദിനാന്തരീക്ഷ താപനിലകൾ സർവകാല റെക്കോർഡുകൾ ഭേദ്ദിച്ചത്ടൂയി ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രവിശ്യാ തലസ്ഥാനമായ എൽ ആരിഷിൽ തീവ്രവാദികളുടെ ഒളിത്താവളം രഹസ്യവിവരത്തെ തുടർന്ന് പൊലീസ് റെയ്ഡ് ചെയ്യുകയായിരുന്നു

ഭീകരവാദത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഭീകരവാദികളെ സഹായിക്കുന്ന കേന്ദ്രങ്ങളെ കണ്ടെത്തി തടയണമെന്നും കേന്ദ്ര വിദേശ കാര്യമന്ത്രാലയം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

ശനിയാഴ്ച നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്

റിയർ അഡ്മിറൽ വി മോഹൻ ഡോസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു